ജെ പി യുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ

എ എം

ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഗൈഡ് ബോംബിന്റെ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കാൻ ബി ജെ പി യുടെ പ്പാർല്ലമെന്ററി പാർട്ടി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും വോട്ട ഇന്നലെ രാഷ്ട്രപതി രാംസ്റ്റ്ഫ് കോവിന്ദിനെ കണ്ട് പ്രധാനമന്ത്രിയും മന്ത്രിമാരും രാജിക്കത്തിച്ചുകൈമാറിയിരുന്നു രാജി സ്വീകരിച്ച രാഷ്ട്രപതി പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതുവരെ കാവൽ മന്ത്രിസഭയായി തുടരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു

ജെ പി പാർലമെന്ററി യോഗത്തിനു ശേഷം ശ്രീ മോദി പാർലമെന്റ് സെൻട്രൽ ഹാളിൽ എൻ ഡി എ യുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി മാരെ അഭിസംബോധന ചെയ്തേക്കും

നരേന്ദ്രമോദിയും ബി

പി അധ്യക്ഷൻ അമിത് ഷായും മുതിർന്ന ബി

പി നേതാക്കളായ എൽ

പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി മാരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്നതോടെയാണ് പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഔദ്യോഗിക തുടക്കമാകുന്നത് രാഷ്ട്രപതി എം

ജെ പി നയിക്കുന്ന എൻ ഡി

ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ലോക്സഭ സ്പീക്കർ സുമിത്ര മഹാജൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് സുഷമ സ്വരാജ് നിതൻഗഡ്കരി തുടങ്ങിയവർ പങ്കെടുത്തു

എല്ലാവരുടേയും സ്വപ്നങ്ങളിലുള്ള ഇന്ത്യ പടുത്തുയർത്തുമെന്നും അദ്ദേഹം ട്ടിറ്ററിൽ കുറിച്ചു

ഡി എ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ കൂടുതൽ തിളക്കത്തോടെ പുതിയ സൂര്യോദയമായി അടുത്ത ഗവൺമെന്റ് അധികാരമേൽക്കുമെന്ന് ശ്രീ

ഉത്തർപ്രദേശിൽ നേരിട്ട വലിയ ത്യോൽവീ യോഗത്തിൽ പ്രത്യേകമായി ചർച്ചു ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട്ട്

ഈ സംഘടന ജമാ അത്ത് അൽ മുജാഹിദീൻ ഇന്തൃ ജമാ അത്ത് അൽ മുജാഹിദീൻ ഹിന്ദുസ്ഥാൻ എന്നിവയെപ്പോലെ ഭീകരപ്രവർത്തന നേതൃത്വം കൊടുക്കുകയും യുവാക്കളെ ങ്ങൾക്ക് ഇത്തരം പ്രവൃത്തികൾക്കായി റിക്രൂട്ട് ചെയ്യുന്നതായും ആഭ്യന്തര മന്ത്രാലയ ത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു

രണ്ടു മാസത്തേക്കാണ് കാലവധി നീട്ടി നൽകിയത്

ധനമന്ത്രി അരുൺ ജയ്റ്റലിയാണ് തീയതി നീട്ടി നൽകിയത്

ഇതിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഇന്ന് പൂർണമായും റദ്ദാക്കി നാളെയും മറ്റന്നാളും ചില ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട് ബദൽ യാത്രാ സംവിധാനം ഒരുക്കുമെന്ന് കെ എസ് ആർ ടി

അതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭൂഗ്ങ്ങളിൽ ഇന്നലെ പെയ്ത മഴയിൽ പലയിടത്തും കനത്ത നാർനുഷ്ടം ഉണ്ടായി ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു

എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും ജപ്പാനിലെ ഒസാക്കയിലാണ് ജി

എസും ഇന്ത്യയും തമ്മിലുള്ള നയപരമായ കാര്യങ്ങളിലുള്ള പങ്കാളിത്തം കഴിഞ്ഞ രണ്ടുവർഷങ്ങളിലുള്ള നേട്ടങ്ങൾ എന്നിവ ചർച്ച ചെയ്യും

മോദിയുടെ ചരിത്രപരമായ വിജയത്തെ യു

പ്രസിഡന്റ് ടെലിഫോൺ മുഖാന്തിരം അഭിനന്ദനം അറിയിച്ചതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു ഇതിനിടെ യു എസ് ഇന്ത്യ ജപ്പാൻ എന്നീ രാഷ്ട്രങ്ങൾ പ്രത്യേക ത്രിരാഷ്ട്ര സമ്മേളനവും നടത്തും ഇന്തോ പസഫിക് മേഖലയിൽ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനുള്ള ചർച്ചകൾ സമ്മേളനത്തിൽ നടക്കും

ബ്രെക് സിറ്റ് കരാറുമായി ബന്ധപ്പെട്ട് എം

ജസ്റ്റിസുമാരായ ബി

ഗവായ് സൂര്യകാന്ത് അനിരുദ്ധ ബോസ് എ

വിഭാഗത്തിലാണ് മത്സരിച്ചത്

അലോട്ട്മെന്റ് ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്